എസ്

ലോക് സഭാംഗങ്ങൾക്കുള്ള ബഹുനില ഫ്ളാറ്റുകൾ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകായിരുന്നു പ്രധാനമന്ത്രി

എംപിമാരുടെ ഭവനങ്ങൾ ്മാത്രമല്ല ന്യൂഡൽഹിയിൽ നിരവധി നിർമാണ പ്രവർത്തനങ്ങൾ ഈ ഗവൺമെന്റ് നടത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു അം ബ്രേദ്ക്ർ ദേശീയ സ്മാരകം ദേശീയ പോലീസ് സ്മാരകം യുദ്ധസ്മാരകം തുടങ്ങി നിരവധി സ്മാരകങ്ങളുടെ നിർമാണ പ്രവർത്തന്റെ ഈ ഗവൺമെന്റ് പൂർത്തീകരിച്ചു പാർലമെന്റിന്റെ സമയം ശരിയായി വിനിയോഗിക്കാനും പരമാവധി പ്രവർത്തി സമയമായി പരിഗണിക്കാനും എല്ലാ അംഗങ്ങളും സഹകരിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ രാജ്യസഭ ലോകസഭ എംപി മാർ പ്രശംസനീയമായ നിലപാടാണ് എടുക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മുൻപത്തേക്കാൾ നിരവധി മടങ്ങ് പ്രവർത്തി ദിവസങ്ങൾ ആണ് പാർലമെന്റിൽ ഉണ്ടായത്

ലോക്സഭ സ്പീക്കർ ഓം ബിർള കേന്ദ്ര മന്ത്രിമാരായ ഹർദീപ്സിങ് പുരി പ്രഹ്താദ് ജോഷി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു

പരിസ്ഥിതി സൌഹൃദം രീതിയിലാണ് ഇവ നിർമിച്ചത്

ആന്ധ്രാപ്രദേശ്തെലങ്കാന ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന ഉത്തരാഖണ്ഡ് തമിഴ്നാട് ചണ്ഡിഗഡ് ജമ്മു കശ്മീർ ഗുജറാത്ത് ഒഡീഷ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും ഖാരിഫ് സീസണിലെ നെല്ല് സംഭരണം മികച്ച രീതിയിൽ തുടരുകയാണ്

കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ മാർച്ച് മുതൽ സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ വിദ്യാർത്ഥികളും അദ്ധ്യാപകരും ക്യാമ്പസുകളിൽ പ്രവേശിക്കാവൂ എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്

തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനമാണിത് എല്ലാ എം

എ മാരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് നിയമസഭാ സെക്രട്ടറി ആർ

അണുനാശിനിയുടേയും മുഖാവരണത്തിന്റെയും ഉപയോഗം നിർബന്ധമാണ്

ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച നിയമസഭയിൽ നടത്തി എല്ലാ ഭാഗത്തുനിന്നും അഭിപ്രായം കേട്ട് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു ഭേദഗതി പഖ്യാപിക്കപ്പെട്ടതോടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നതോടെയും ജനാധിപത്യ സംരക്ഷണത്തിനായി നിലക്കൊള്ളുന്നവർ ആശങ്ക പ്രകടിപ്പിതൊടയുമാണിത് സാമൂഹ്യമാധ്യങ്ങളിലൂടെയും അല്ലാതെയും വ്യക്തി സ്വാതന്ത്യത്തിൻറെയും മാനവികസതയുടെയും അന്തസത്തയ്ക്ക് യോജിക്കാത്ത പ്രചാരണങ്ങളിൽ ഏർപ്പെടുന്നവർ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സമൂഹമാകെ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും അഭ്യർത്ഥിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു

എല്ലാ ജില്ലകളിലും ആയിരത്തിലേറെ പേർ ചികിത്സയിലുണ്ട്

ഇന്ത്യൻ നാവികസേന ആതിഥേയത്വം വഹിക്കുന്ന പ്രിശ്രീലന പരിപാടി ആൻഡമാൻ കടലിലാണ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ

വ്യോമാക്രമണ പ്രതിരോധം അന്തർവാഹിനി ആക്രമണ പ്രതിരോധം തുടങ്ങിയ അതിനൂതനമായ പരിശീലനങ്ങളും ഈ വർഷത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലും പരിപാടി നടത്താൻ തീരുമാനിച്ചത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസവും സഹകരണവും എടുത്ത് കാണിക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ് സിയും ഹൈദരാബാദ് എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടും

കഴിഞ്ഞ സീസണിൽ ഏറ്റവും പിന്നിലായിരുന്നു ഹൈദരാബാദ്

തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളിൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചത് കേരളത്തിലും ജാഗ്രത നിർദേശം നൽകിയിട്ടുണ്ട്

മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദേശമുണ്ട്